ഉപധനാഭൃർത്ഥന ലോക്സഭ പാസാക്കി സംസ്ഥാനങ്ങൾക്ക് അർഹമായ നികുതി വിഹിതം ലഭൃമാക്കുന്നുണ്ടെന്ന് കേന്ദ്ര മന്ത്രി നിർമല സീതാരാമൻ

ഇ കിറ്റ് നിർമാർതാക്ക്ളെ സൃഷ്ടിക്കാനായെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാണി

ലോകോത്തര നിലവാരം പുലർത്തുന്ന കടൽത്തീരങ്ങൾക്കുള്ള ബ്ലൂ ഫ്ളാഗ് സാക്ഷ്യപത്രത്തിനായി ഇന്ത്യയിൽ നിന്നും എട്ട് ബീച്ചുകൾ നിർദ്ദേശിക്കപ്പെട്ടു

തുടക്കമാകും

സംസ്ഥാനങ്ങൾക്ക് അർഹമായ നികുതി വിഹിതം പ്ലഭ്യമാക്കുന്നില്ല എന്ന വാദത്തിന് അടിസ്ഥാനമില്ലെന്ന് ബിൽ ശ്രചർച്ചയ്ക്കിടെ കേന്ദ്രമന്ത്രി നിർമല സീതാരാമൻ പറഞ്ഞു

കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നികുതി റിട്ടേണുകളെ സംബന്ധിച്ചനിരവധി ഇളവുകൾ ബില്ലിൽ പരാമർശിക്കുന്നു

ഇ കിറ്റ് നിർമാതാക്കളെ സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാരിനായെന്ന് ടെക്സറ്റൈൽ മന്ത്രി സ്മൃതി ഇറാനി ലോക്സഭയെ അറിയിച്ചു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ സംഭരണ ഏജൻസിയായ എച്ച്

ഇ കിറ്റുകൾ വിതരണം ചെയ്യാനായി

എൽ സംഭരിച്ചു

കോവിഡ് പശ്ചാത്തലത്തിൽ മെഡിക്കൽ ഓക്സിജൻ അത്യാവശ്യമാണെന്നും അന്യസംസ്ഥാനങ്ങളിലേക്കുള്ള ഓക്സിജൻ വിതരണം ഓക്സിജൻ നിർമാണ യൂണിറ്റുകൾ ഉള്ള സംസ്ഥാനങ്ങൾ തടസപ്പെടുത്താൻ ശ്രമിക്കുന്നതായി ശ്രദ്ധയിൽപെട്ടതിനാലാണ് നിർദ്ദേശ്മെന്നും ആഭ്യന്തര സെക്രട്ടറി അജയ്ഭല്ല സംസ്ഥാനങ്ങളിലേയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേയും സെക്രട്ടറി മാർക്കയച്ച കത്തിൽ പറഞ്ഞു

പത്ത് ലക്ഷത്തിലേറെ പേർ ചികിത്സയിൽ

അമേരിക്ക ബ്രസീൽ മെക്സിക്കോ എന്നിവിടങ്ങളിലും രോഗവ്യാപനം വർദ്ധിക്കുകയാണ്

ബനാറസ് ഹിന്ദു സർവകല്മ്ശാല്യിലെ പ്രൊഫ ജ്ഞാനേശ്വർ ചൌബെയുടെ നേതൃത്വത്തിലുള്ള ജനിതക വിദഗ്ദ്ധരടങ്ങിയ സംഘമാണ് പഠനം നടത്തീയത്

ഇതാദ്യമായാണ് ഇന്ത്യയിലെ എട്ടു ബീച്ചുകൾ അന്താരാഷ്ട്ര പ്രിസ്ഥിതി സൌഹൃദ സാക്ഷ്യപത്രം ലഭിക്കാൻ അർഹമാകുന്നത് അന്താരാഷ്ട്ര കടൽത്തീര ശുചിത്വ ദിനത്തോടനുബന്ധിച്ചാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത് കടൽത്തീരങ്ങളിലെ പരിസ്ഥിതി പരിപാലനം സുരക്ഷ സേവനങ്ങൾ മുതലായവയാണ് ബ്ലൂ ഫ്ളാഗ് നൽകാൻ പരിഗണിക്കുന്നത് ഡെൻമാർക്കിലെ പരിസ്ഥിതി ബോധവൽക്കരണ സംഘടനയായ ഫൌണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എജ്യൂക്കേഷനാണ് സാക്ഷ്യപത്രം നൽകുന്നത്

സംഘർഷം ലഘൂകരിക്കുന്നതടക്കം പരസ്പര വിശ്വാസം മെച്ചപ്പെടുത്തുന്ന നടപടികൾ കൈക്കൊള്ളണമെന്ന് പതിനഞ്ചംഗ രക്ഷാസമിതി ഇരുപക്ഷത്തോടും അഭ്യർത്ഥിച്ചു

കോവിഡ് മഹാമാരിയുട്ടിക് പശ്ചാത്തലത്തിലാണ് ഐപിഎൽ മത്സരങ്ങൾ യു എഇ യില്ലേക്ക് മാറ്റിയത്

ഇത്തവണത്തെ ഐപിഎൽ മത്സരങ്ങൾ ആരാധകർക്ക് ടിവിയിലൂടെ മാത്രം ആസ്വദിക്കാനേ കഴിയൂ കോവിഡ്സാഹചര്യം പരിഗണിച്ച് യുഎഇ യിലേക്ക് മാറ്റിയ മത്സരങ്ങൾ കാണികളെ പ്രവേശിപ്പിക്കാതെ അടച്ചിട്ട സ് റ്റേഡിയത്തിലാകും നടത്തുക മുപ്പത് ശ്തമാനത്തോളം ഇന്ത്യക്കാരുള്ളതുകൊണ്ടുതന്നെ യുഎഇയിലും ഐപിൽ ആവേശത്തിന് കുറവില്ല സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള മലയാളിതാരങ്ങളുടെ സാന്നിധ്യം ദുബായ് മലയാളികൾക്കും ആവേശം നൽകുന്നുതാണ് അബുദാബി ഷാർജ ദുബായ് സ്റ്റേഡിയങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സുസ്ഥിര വികസന ലക്ഷ്യത്തെക്കുറിച്ച് മുംബൈയിൽ ് സംഘടിപ്പിച്ച പരിപാടിയിൽ ഇന്ത്യയിലെ അന്താരാഷ്ട്ര ധനകാര്യ കോർപ്പറേഷൻ മേധാവി ജുൻ സാങ് ആണ് സഹായപ്രഖ്യാപനം നടത്തിയത്

രേഖാമൂലം അറിയിച്ചതാണിത്